ജമ്മു കശ്മീരിൽ സുരക്ഷ്ടാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ആറ് ഭീകരർ കൊല്ലപ്പെട്ടു

സൌദി അറേബൃയിൽ എണ്ണക്കമ്പനികളിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ഇന്തൃ ശക്തിയായി അപലപിച്ചു

ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകൾ ആദ്യ ശ്രമത്തിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി

വിശദാംശങ്ങളുമായി ഗോപകുമാർ

അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദിഷ്ട സമയത്തിന് ഒരു ദിവസം മുമ്പ് പശ്ചിമ ബംഗാളിൽ പ്രചാരണം അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത്

അതിനിടെ പശ്ചിമ ബംഗാളിലെ പ്രചാരണ സമയം വെട്ടിക്കുറച്ച സംഭവത്തിൽ ബഹുകക്ഷി പ്രതിനിധി സംഘം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കോൺഗ്രസിലെ മനു അഭിഷേക് സിംഗ്വി രാജീവ് ശുക്സ ടി ഡി

യിലെ ബി

രമേഷ് എ

പശ്ചിമബംഗാളിലെ അക്രമ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മനു അഭിഷേക് സിംഗ്വി പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പ്രറഞ്ഞു

പ്രധാനമന്ത്രി ന്ന്രേന്ദ്രമോദി മധ്യപ്രദേശിലെ ഖാർനോത്തിൽ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഹിമാചൽപ്രദേശീലെ സോലാനിലും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വദ്ര ഉത്തർപ്രദേശിലെ മിർസാപൂരിലും പ്രചാരണം നടത്തും ബിഎസ്പി നേതാവ് മായാവതി മിർസാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

കാസർകോട്ടെ കല്യാശേരിയിലെ മൂന്നു ബൂത്തുകളിലും കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു ബൂത്തിലുമാണ് റീ പോളിംഗ് നടത്തുന്നത് ഞായറാഴ്ച രാവിലെ ഏഴു മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ്

ഷോപിയാൻ ജില്ലയിലെ ഹെൻഡ്യൂ മേഖലയിൽ സുരക്ഷാ സേനയുമായി നടന്ന പോരാട്ടത്തിൽ മൂന്ന് ഹിസ്ബുൾ മുജാഹുദീൻ തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് നേരത്തെ പുൽവാമ ജില്ലയിലെ ഡലിപോറ ഗ്രാമത്തിൽ ജയ്ഷെ ഇ മുഹമ്മദ് സംഘത്തിൽപ്പെട്ട മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു

മുംബൈയിൽ ഇന്ത്യൻ വ്യവസായ കോൺഫഡറേഷൻ സംഘടിപ്പിച്ച പോളിസി റൌണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സമഗ്രവികസനത്തിന് ജില്ലാടിസ്ഥാനത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം

എസ് ചൈന വാണിജ്യ യുദ്ധം മൂലം വൻകിട രാഷ്ട്രങ്ങൾ പ്രതിസന്ധി നേരിട്ടപ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചയുടെ പാതയിൽ മുന്നേറുകയായിരുന്നുവെന്നും സുരേഷ് പ്രഭു പറഞ്ഞു ആഭ്യന്തര വിദേശ നിക്ഷേപ സാധ്യതകൾ സമ്മേളനം ചർച്ച ചെയ്തു

രാജ്യത്തെ രാഷ്ട്രീയ സുസ്ഥിരത നിക്ഷേപത്തിന് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാഠ്മണ്ഡുവിൽ നടന്ന ഇന്ത്യ നേപ്പാൾ നിക്ഷേപ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ കമ്പനികളുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് നേപ്പാൾ ധനകാര്യമന്ത്രി പറഞ്ഞു

ഭീകരതയ്ക്കും അക്രമങ്ങൾക്കും എതിരായ പോരാട്ടത്തിൽ ലോകരാജൃങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നതാണ് ഇന്തൃയൂടെ നയമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു സൌദി അറേബൃയിലെ കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ പൈപ്പ് ഒല്പെനീലാണ് കഴിഞ്ഞ ദിവസം സായുധ ഡ്രോൺ ആക്രമണമുണ്ടായത് ഒരു പമ്പിക്ക് സ്റ്റേഷന് ആക്രമണത്തിൽ ചെറിയ നാശമുണ്ടായി

സൌദിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാർക്ക് നാട്ടിൽ തിരിച്ചെത്താൻ സൌകര്യം ഒരുക്കുകയാണ് ഗവൺമെന്റ് കൂടതൽ വിവരങ്ങളുമായി

അതിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സൌദി അറേബ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ഔസഫ് സയീദ് പറഞ്ഞു

പ്രവർത്തനം നിലച്ച ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരാണ് നാട്ടിൽ തിരിച്ചെത്താനാകാത്ത വിധം സൌദിയിൽ അകപ്പെട്ടുപോയത് ഇവരുടെ സ്ഥിതി അധികൃതരോട് വെളിപ്പെടുത്തി വേണ്ട നടപടി കൈക്കൊള്ളുകയായിരുന്നു തങ്ങൾ ജനങ്ങൾക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ശ്രീ സയീദ് ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യൻ സ്ഥാനപതി തങ്ങളെ കാണാൻ വന്നതും വിരുന്നൊരുക്കിയതും വിശ്വസിക്കാനായില്ലെന്ന് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നുള്ള രാംവീറും തെലങ്കാനയിൽ നിന്നുള്ള ബാബു റാവു പ്രതികരിച്ചപ്പോൾ തിരിച്ചു നാട്ടിലേക്കു പോകുന്നതിന്റെ അതിയായ സന്തോഷത്തിലാണ് മറ്റു ജീവനക്കാർ

മൂന്നുതവണ മന്ത്രിയായിരുന്ന അദ്ദേഹം തൊഴിൽ വൈദ്യൂതി എക്സൈസ് വനം ആരോഗ്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്

ഡിസിസിയിൽ പൊതുദർശനശേഷം ആനന്ദവല്ലീശ്വരത്തെ സ്വവസതിയായ മിനി ഭവനിലേക്ക് കൊണ്ടുപോകും

ആദ്യശ്രമത്തിൽ തന്നെ എൻ എസ്

ഗാർഡുകൾ ലക്ഷ്യം കണ്ടു ലഫ്റ്റണന്റ് കേണൽ ജെ

വിജയകരമായി ദൌത്യം പൂർത്തിയാക്കിയ സംഘത്തെ എൻ എസ്

ഡയറക്ടർ ജനറൽ സുദീപ് ലഖ്താക്കിയ അഭിനന്ദിച്ചു

ഇടനിലക്കാരൻ അബു റവന്യു ജീവനക്കാരൻ കെ അരുൺകുമാർ എന്നിവർക്കെതിരെയാണ് കേസ് വ്യാജരേഖ ചമയ്ക്കൽ കൈക്കൂലിവാങ്ങൾ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുളളത് കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് അന്വേഷണോദ്യോഗസ്ഥർ അറിയിച്ചു

അമേരിക്കൻ പ്രവേശനത്തിന് ശ്രമിക്കുന്ന് ഇന്ത്യൻ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദേശികൾക്ക് സഹായകരമാകുന്നതാണ് നട്പടി